ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിലേയ്ക്കുള്ള പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം നാലാംഘട്ടത്തിലേയ്ക്കുള്ള പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും

വീരമൃത്യു വരിച്ച പോലീസ് സേനാംഗങ്ങൾക്ക് സി

എഫ് ശൌര്യ ദിനത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ആദരാഞ്ജലി അർപ്പിച്ചു

കേരള കോൺഗ്രസ് എം ചെയർമാൻ കെ

മാണിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയെന്ന് ഡോക്ടർമാർ

എൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും

വോട്ടെടുപ്പിനോട് അനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് ഈ മണ്ഡലങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത്

പ്രധാനമന്ത്രി നർഗ്ഗ് മോദിയും ബിജെപിയുടെ ദേശീയ അധ്യക്ഷൻ അമിത് ഷായും ഒന്നാംഘട്ടത്തിൽ തെരഞ്ഞെടുപ്പു നടക്കുന്ന മണ്ഡലങ്ങളിലെ പ്രചരണ പരിപാടികൾ പൂർത്തിയാക്കി കോൺഗ്രസിനുവേണ്ടി പാർട്ടി അധ്യക്ഷൻ രാഹുലും പ്രിയങ്കയും ആണ് പ്രധാനമായും പ്രചാരണത്തിന് ഇറങ്ങിയത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിബി ജെ

ദേശീയ അധ്യക്ഷൻ അമിത് ഷാ മഹേഷ് ശർമ തുടങ്ങി നിരവധി പ്രമുഖർ ഒന്നാം ഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട് ആന്ധ്രാപ്രദേശ് അരുണാചൽ പ്രദേശ് മേഘാലയ മിസോറം നാഗാലാന്റ് സിക്കിം മണിപ്പൂർ ഒഡീഷ ത്രിപുര ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് വൃഴാഴ്ച വോട്ടെടുപ്പ് നടക്കുന്നത് അസം ബീഹാർ ഉത്തർപ്രദേശ് തെലങ്കാന ഉത്തരാഖണ്ഡ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലും അന്നാണ് തെരഞ്ഞെടുപ്പ്

ആകാശവാണി

വിവരങ്ങളുമായി ലക്ഷ്മിശ്രീ വിജയ

ജെ

ദേശീയ അധ്യക്ഷൻ അമിത് ഷാ ഗാന്ധിനഗർ സീറ്റിൽ നിന്നും ആദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന പ്രത്യേകതയും ഉണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൃത്യസ്തമായി അരുണാചലിൽ വളരെ കുറച്ച് തിരഞ്ഞടുപ്പ് റാലികൾ മാത്രമാണ് നടന്നത്

എങ്കിലും വോട്ടർമാരെ സ്വാധീനിക്കുന്നതിനായി രാഷ്ട്രീയ പാർട്ടികൾ നിരവധി വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്

അതേസമയം മൂന്നാംഘട്ട തെരഞ്ഞെടുപ്പിന്റെ പത്രിക പ്രിൻപൂലിക്കാനുള്ള സമയം ഇന്നലെ അവസാനിച്ചിരുന്നു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെ വെള്ളിയാഴ്ചയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന നടക്കും

സംസ്ഥാനത്തെ ലാത്തൂർ ജില്ലയിലെ റാലിയെ അദ്ദേഹം അഭിസംബോധന പ്രകടനപത്രികയിലെ വാഗ്ദാനങ്ങള് നിറവേറ്റാൻ എൻ

എക്ക് വീണ്ടും അവസരം നൽകണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു ശിവസേനയുമായി ചേർന്നുള്ള സംയുക്ത റാലി കൂടിയാണിത്

കർണാടകയ്ടിൽ ചിത്രദുർഗയിലെയും മൈസുരുവിലെയും തെരഞ്ഞെടുപ്പ്പ് പ്രദ്ധീകളിൽ അദ്ദേഹം സംസാരിക്കും

നോട്ടുകളുടെ ശേഖരണവും കൈമാറ്റവും അനധികൃതമായി നടക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ഡൽഹി ഭോപ്പാൽ ഇൻഡോർ ഗോവ എന്നിവിടങ്ങളിലും പരിശോധന നടത്തി

കണ്ടെടുത്ത പണത്തിന്റെ നല്ലൊരു ശതമാനം ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സംഘടനയുടെ അക്കൌണ്ടിലേക്കുള്ള കള്ളപ്പണമാമെന്നും നികുതി ഉദ്യോഗസ്ഥർ പറഞ്ഞു

തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം ക്ക്നില്ലവിൽ വന്നതിനുശേഷമുള്ള കണക്കാണിത്

ന്യൂഡൽഹിയിലെ നാഷണൽ പൊലീസ് മെമ്മോറിയലിൽ സി

സമാധാന അന്തരീക്ഷത്തിൽ രാജ്യം വികസനത്തിന്റെ പാതയിൽ ഏറെ മുന്നോട്ട് പോവുകയാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു

എ തെരച്ചിൽ നടത്തിയിരുന്നു

തമിഴ്നാട് സ്വദേശികളായ മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്കയിലെ കാങ്കേശതുറൈ നാവികആസ്ഥാനത്ത് എത്തിച്ച് ചോദ്യം ചെയ്യുകയാണ് സമുദ്രാതിർത്തി ലംഘിച്ചെന്ന പേരിൽ ഇരു രാജ്യങ്ങളും മത്സ്യത്തൊഴിലാളികളെ കസ്റ്റഡിയിലെടുക്കുക പതിവാണ്

ഇറാബോർ പോലീസ് സ്റ്റേഷനിൽ ജില്ലാ പോലീസ് മേധാവിക്ക് മുമ്പാകെയാണ് നക്സലുകൾ ആയുധംവച്ച് കീഴടങ്ങിയത്

മാണിയുട്ടി ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ശ്വാസകോശ സംബ്ദ്ധമായ അസുഖത്തെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്

അണുബാധ ഉണ്ടാകുമെന്നുതിനാൽ സന്ദർശകർക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്

നെട്ടൂരിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിൽ മറ്റൊരു ലോറിയിടിച്ച് രണ്ട് പേരും മരടിൽ കാറിടിച്ച് വഴിയാത്രക്കാരനുമാണ് മരിച്ചത്

നെട്ടൂരിൽ ലോറിയിലുണ്ടായിരുന്ന വർഗീസ് ജോൺ എന്നിവരാണ് മരിച്ചത് മരടിൽ വണ്ടിപ്പെരിയാർ സ്വദേശി പി

പട്ടണം ഹംസപ്പയുടെ മകൾ ഹർഷീനയും ഇന്ന് പൂലർച്ചെ മൌലാന ആശുപത്രിയിൽ മരിച്ചു ഹർഷീനയുടെ പിതാവ് ഹംസപ്പയും അനുജൻ ബാദുഷയും ഇന്നലെ രാത്രി തന്നെ മരണപ്പെട്ടിരുന്നു